ഈ വർഷത്തെ എസ്

കുട്ടിയുടെ സാമ്പിൾ പരിശോധനയിലാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്

വിമാനത്തിലെ സഹയാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് കുട്ടിയുമായി സമ്പർക്കത്തിലായവർ നീരീക്ഷണത്തിലാണ്

ജില്ലാ ഭരണ കൂടത്തിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണ പ്രവർത്ത നങ്ങൾ പുരോഗമിക്കുകയാണ്